ഉപയോഗാനുമതി കേരളത്തിൽ ്വാക്സിൻ ക്ഷാമം ഗുരുതരമാകുമെന്ന് ആരോഗൃച്ചമന്ത്രി കെ കെ ശൈലജ

തെരഞ്ഞെടുപ്പ് മെയ് രണ്ടിനകം നടത്തണമെന്ന് ഹൈക്കോടതി

കിംഗ്സിനെ നേരിടും

കോഴിക്കോട് എറണാകുളം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതർ

കോവി ഷീൽഡും കോ വാക്സിനുമാണ് രാജ്യത്ത് ഇതുവരെ നൽകിവന്നത്

വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് ഇത്രയേറെ പേർക്ക് വാക്സിൻ നൽകാൻ സാധിച്ചത് വളരെ അഭിമാനകരമാണെന്നും മന്ത്രി വൃക്തമാക്കി

കൂടുതൽ വാക്സിൻ എത്തിക്കാനായി കേന്ദ്രത്തിന് സംസ്ഥാനം കത്തയച്ചിട്ടുണ്ടെന്നും ശ്രീമതി

കെ ശൈലജ പറഞ്ഞു

മെഗാഷോപ്പിങ്ങ് ഫെസ്റ്റിവലുകളും നിരോധിച്ചിട്ടുണ്ട്

പി അരവിന്ദൻ കോവിഡ് വ്യാപനം തടയാൻ വാക്സിനേഷൻ കൊണ്ടു മാത്രമേ സാധിക്കുവെന്നും എല്ലാവരും വാക്സിൻ സ്വീകരിക്കാൻ മുന്നോട്ടുവരണമെന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് പതോളജി വിഭാഗം അധ്യാപകനായിരുന്നു കെ

അരവിന്ദൻ ആകാശവാണിയോട് പറഞ്ഞു

കോവിഡ് വ്യാപനവും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ടാകാതെ പൂരം നടത്തുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ കലക്ടർ നൽകി

ആരോഗ്യവകുപ്പ് വിവിധയിടങ്ങളിൽ പൊലീസുമായി സഹകരിച്ച് എയ്ഡ് പോസ്റ്റുകൾ സ്ഥാപിക്കും

രാജ്യസഭാ തെരഞ്ഞെടുപ്പ് മരവിപ്പിച്ചതിനെതിരെ നിയ്മസ്ഭാ സെക്രട്ടറിയും എസ്

എയും നൽകിയ്ഹർജികളിലാണ് കോടതി ഉത്തരവ്

പിമാരായ വയലാർ രവി കെ കെ രാഗേഷ് പി

എന്നാൽ ഭരണഘടനാപരമായ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് വേണം കമ്മീഷൻ തീരുമാനം എടുക്കേണ്ടതെന്ന് പറഞ്ഞ ഹൈക്കോടതി കാലതാമസമില്ലാതെ തെരഞ്ഞെടുപ്പ് നടത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു എൽ

എഫ് കൺവീനർ ഈ നിയമസഭയുടെ കാലാവധിക്കുള്ളിൽ തന്നെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടപടി പൂർത്തീകരിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് സ്വാഗതാർഹമാണെന്ന് എൽ

എഫ് കൺവീനർ എ

രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നീട്ടിവയ്ക്കാനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം ഭരണഘടനാ വിരുദ്ധമാണ് അത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് കേന്ദ്രഗവൺമെന്റിന്റെ താൽപ്പര്യങ്ങൾക്ക് കീഴടങ്ങുകയാണ് ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തതെന്നും ശ്രീ

ഹർജി കോടതി നാളെ പരിഗണിക്കും ലോകായുക്തൂനിയുമം അനുശാസിക്കുന്ന പ്രകാരമുള്ള അന്വേഷണം നൂടത്താതെയുള്ള ഉത്തരവ് നിയമപരമല്ലെന്ന് ഹർജിയിൽ ്പറയുന്നു

മന്ത്രി ജലീൽ രാജിവെയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

എം ഷാജി എം എൽ എയുടെ കോഴിക്കോട്ടെയും കണ്ണൂരിലെയും വസതികളിൽ വിജിലൻസ് പരിശോധന നടത്തി വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചെന്ന വിജിലൻസ് കേസിനെ തുടർന്നാണ് റെയ്ഡ്

എന്നാൽ സൌദി അറേബ്യ ഉൾപ്പെടെ വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നാളെ റംസാൻ പ്രതം ആരംഭിക്കും

കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ ക്ഷേമ ഏകോപന സമിതിയാണ് ഇക്കാര്യം അറിയിച്ചത് പ്രാദേശിക അവധി നെയ്യാറ്റിൻകര മേലേ തെരുവ് ശ്രീ മുത്താരമ്മൻ കോവിലിലെ അമ്മൻകൊട മഹോത്സവത്തോടനുബന്ധിച്ച് നാളെ നെയ്യാറ്റിൻകര മുൻസിപ്പാലിറ്റി പ്രദേശത്ത് ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു പ്രദേശത്തെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും മുൻനിശ്ചയിച്ചിട്ടുള്ള പൊതു പരീക്ഷകൾക്കും പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടു പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കില്ല ഗവർണർ സുപ്രീംകോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ജസ്റ്റിസ്

ഫാത്തിമ ബീവിയെ കാണാൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പത്തനംതിട്ടയിലെ വീട്ടിൽ നേരിട്ടെത്തി ശബരിമല ദർശനത്തിനു ശേഷം രാജ്ഭവനിലേക്ക് മടങ്ങുന്ന വഴിയാണ് ഗവർണർ സന്ദർശനം നടത്തിയത് ജസ്റ്റിസ്

ഫാത്തിമ ബീവിയോടുള്ള ബഹുമാന സൂചകമായാണ് സന്ദർശനം നടത്തിയതെന്ന് ഗവർണർ പറഞ്ഞു

ബാങ്ക് നയം കേന്ദ്ര സർക്കാരിന്റെ പൊതുമേഖലാ ബാങ്ക് നയത്തിനെതിരെ പ്രതിഷേധവുമായി ഡി വൈ എഫ് ഐ കേന്ദ്ര നയം ബാങ്കുകളെ ആത്മഹത്യാ മുനമ്പാക്കുന്നു്വെന്ന് ചൂണ്ടിക്കാട്ടി ജില്ലാ കേന്ദ്രങ്ങളിലെ കാനറാ ബ്ടാങ്ക് ശ്രാഖയ്ക്ക് മുന്നിൽ നാളെ ധർണ സംഘടിപ്പിക്കാനാണ് ഡി വൈ എഫ് ഐ തീരുമാനം

എൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സിനെ നേരിടും സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായി ഐ

ടീമിൽ നിന്ന് ഒഴിവാക്കിയ സ്റ്റീവ് സ്മിത്തിന് പകരമാണ് സഞ്ജു നായകന്റെ തൊപ്പിയണിയുന്നത്

മഴ കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം കോട്ടയം എറണാകുളം ഇടുക്കി തൃശ്ശൂർ മലപ്പുറം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്

പാലക്കാട് കോഴിക്കോട് ജില്ലകളിലും വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു ഓഹരിസ്വർണം രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം